തർക്ക് നഷ്ടപരിഹാരം പത്ത് ലക്ഷം രൂപയാക്കിയതായി മന്ത്രി കെ രാജു കാമ്പസിലെ വർഗ്ഗീയശക്തികളുടെ കടന്നുകയറ്റത്തിനെ തിരെ വിദ്യാർത്ഥികൾ രംഗത്തുവരണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ ഇംഗ്ലണ്ടും ക്രൊയേഷ്യയും ലോകകപ്പ് സെമിയിൽ

ഈ ആവശ്യമുന്നയിച്ച് കേന്ദ്ര വനം പരി സ്ഥിതി മന്ത്രി ഹർഷവർദ്ധന് അദ്ദേഹം കത്തയച്ചു

കൃഷിനാശത്തിനും നഷ്ടപരിഹാരം ഇര ട്ടിയാക്കി കണ്ണൂർ ജില്ലയിലെ വന്യമൃഗ ആക്രമണങ്ങള ക്കുറിച്ച് സംഘടിപ്പിച്ച യോഗത്തിൽ സംസാരിക്കുകയാ യിരുന്നു മന്ത്രി

പാലക്കാട്ട് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായി രുന്നു മന്ത്രി ജീവനക്കാർ വൈകിയെത്തുന്നത് മൂലം സ്റ്റേഷനുകളിൽ പരേഡ് മുടങ്ങുന്നത് ശ്രദ്ധയിൽപ്പെ ട്ടതിനെ തുടർന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം

സാങ്കേതിക വിദ്യാഭ്യാസം ലഭിച്ചവർ പോർട്ടലിൽ പേര് രജിസ്റ്റർ ചെയ്യുന്നത് തൊഴിൽ ലഭിക്കാൻ സഹായകമാ കുമെന്നും പോർട്ടൽ പരമാവധി പ്രയോജനപ്പെടുത്തണ മെന്നും ടി പി രാമകൃഷ്ണൻ ആവശ്യപ്പെട്ടു ഡോക്ടർമാർക്കിടയിലെ വർധിച്ചുവരുന്ന ആത്മഹ തൃയും വിഷാദരോഗവും നിയന്ത്രിക്കാൻ ഇന്തൃൻ മെഡി ക്കൽ അസോസിയേഷൻ ദേശീയതല വൈകാരിക ആരോഗ്യ സമിതി രൂപീകരിച്ചു മെഡിക്കൽ വിദ്യാർത്ഥി കളുടെയും ഡോക്ടർമാരുടെയും മാനസിക സമ്മർദ്ദം ഒഴിവാക്കാനും വെല്ലുവിളികൾ നേരിടാൻ അവരെ സന്ന ദ്ധമാക്കാനും ലക്ഷ്യമിട്ടാണ് സമിതി രൂപീകരണമെന്ന് ഐ എം എ ദേശീയ പ്രസിഡണ്ട് ഡോ രവി വാൻഖേദ്കർ ഡൽഹിയിൽ അറിയിച്ചു

ഇത്തരം കോളുകൾ എടുക്കുകയോ തിരികെ വിളിക്കുകയോ ചെയ്യരുതെന്ന് പൊലീസ് നിർദ്ദേശിച്ചു കൃാമ്പസിലെ വർഗ്ഗീയശക്തികളുടെ കടന്നു കയറ്റത്തിനെതിരെ പുതുതലമുറ വിദ്യാർത്ഥികൾ രംഗ ത്തുവരണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ ആവശ്യപ്പെ ട്ടു തീവ്രവാദത്തിന്റെയും കൊലപാതകത്തിന്റെയും വേദിയായി ക്യാമ്പസുകൾ മാറരുതെന്ന് അദ്ദേഹം താമ രശ്ശേരിയിൽ പറഞ്ഞു വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചട ങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി

പത്ത നം തി ട്ട യിലെ കുള നട ഓമ ല്ലൂർ താഴൂർക്കടവ് റോഡിന്റെ നിർമ്മാണം ഉദ്ഘാടനം ചെയ്യു കയായിരുന്നു മന്ത്രി ജനക്ഷേമമെന്ന ഗവൺമെന്റ് നയം നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണെന്ന് സുധാ കരൻ പറഞ്ഞു

നിർദ്ദേശത്തോട് രാഷ്ട്രീയപാർട്ടികൾ സമ്മിശ്രമായി പ്രതികരിച്ചു ബി ജെ പിയും ശിരോമണി അദാലിതളും നിർദ്ദേശത്തോട് യോജിച്ചപ്പോൾ തൃണമൂൽ കോൺഗ്രസ് വിയോജിച്ചു അടുത്ത വർഷത്തെ തെരഞ്ഞെടുപ്പിൽ പുതിയ പരി ഷ്ക്കാരം നടപ്പാക്കേണ്ടതില്ലെന്ന് ആദ്യദിവസത്തെ യോഗം അഭിപ്രായപ്പെട്ടു ചർച്ച ഇന്നും തുടരും

ബുധ നാഴ്ച രണ്ടാം സെമിയിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടും

റാക്കിടിച്ചിന്റെ പെനാൽറ്റി കിക്ക് ലക്ഷ്യം കണ്ടതോടെ ക്രൊയേഷ്യ ജേതാക്കളായി

ജില്ലയിലെ മന്ത്രിമാരും ജനപ്രതിനിധികളും രക്ഷാധികാരികളും ജില്ലാപഞ്ചാ യത്ത് പ്രസിഡണ്ട് ചെയർമാനുമായ സമിതിയുടെ ജന റൽ കൺവീനർ ജില്ലാകലക്ടറാണ്

ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി കോഴിക്കോട് നിന്ന് വയ നാട് വരെ നടത്തുന്ന സൈക്കിൾറാലി ജില്ലാകലക്ടർ യു വി ജോസ് ഫ്ളാഗ് ഓഫ് ചെയ്തു ഇന്ന് ബൈക്ക്റാലി സംഘടിപ്പിച്ചിട്ടുണ്ട്

ഒൻപത് വർഷം പൂർത്തിയാക്കിയ ഭാരവാ ഹികൾ സ്ഥാനമൊഴിയണമെന്ന ലോധകമ്മറ്റി ശുപാർശ യെത്തുടർന്നാണ് രാജി ആലപ്പുഴയിൽ ചേർന്ന പ്രത്യേക ജനറൽബോഡിയോഗം ഷാജൻ കെ വർഗീസ് പ്രസിഡ ണ്ടായും ശ്രീജിത്ത് കെ നായർ സെക്രട്ടറിയായും താൽക്കാലിക കമ്മറ്റിയെ തെരഞ്ഞെടുത്തു

ആലത്തൂർ ഡിവിഷൻ രണ്ടാം സ്ഥാനവും പാലക്കാട് മൂന്നാം സ്ഥാനവും നേടി

പലപ്പോഴും ചർച്ചാവിഷയം പോലുമാകാതെ മാറ്റിനിർത്തപ്പെടുന്ന ആംബുലൻസ് ഡ്രൈവർമാരും ഏഞ്ചൽ വൊളണ്ടി യർമാരും യഥാർത്ഥ പോരാളികളാണെന്ന് ചടങ്ങിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ അഭിപ്രായപ്പെട്ടു

കണ്ണൂരിൽ എസ് എസ് എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നതവിജയം നേടിയ മാധ്യമ പ്രവർത്തകരുടെ മക്കളെ അനുമോദിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

സ്വാശ്രയമേഖലയിൽ പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇനി ഗവൺമെന്റ് അനുവദിക്കില്ല എറ ണാകുളം ജില്ലയിലെ പാമ്പാക്കുടയിൽ ആറ് ഹൈടെക് അങ്കൺവാടികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

തൃക്കോ വിൽവട്ടം കുറുവണ്ണ അങ്കൺവാടിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

കാസർകോട് പരപ്പ ഗവ ഹയർസെക്കണ്ടറി സ്കൂളിൽ പുതിയ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായി രുന്നു മന്ത്രി

കേന്ദ്ര നഗര വികസനം ടൂറിസം സാംസ്കാരികം എന്നീ മന്ത്രാലയങ്ങളുടെ സഹ കരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്

കൂത്താട്ടുകുളം സ്വദേശികളായ നിഖിൽ നോബിൻ എന്നിവരാണ് മരിച്ചത്